യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി സിംഗപ്പൂർ ഓസ്ട്രേലിയ തായ്ലാന്റ് പ്രധാനമന്ത്രിമാരുമായി സിംഗപ്പൂരിൽ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി

കരാറിലെ വ്യവസ്ഥകൾ നൂതനവും സമഗ്രവും പരസ്പരം പ്രയോജനപ്പെടുത്തുന്നതുമാകണമെന്നും ശ്രീ

മേഖലാ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ചാവിഷയമായി

കിഴക്കൻ ഏഷ്യൻ നയത്തിന്റെ ഭാഗമായി പ്രതിരോധ നിക്ഷേപ സഹകരണം വർദ്ധിപ്പിക്കണമെന്ന് തായ്ലാന്റ് പ്രധാനമന്ത്രി ജനറൽ പ്രയുത് ചാൻ ഓ ചാ യുമായുള്ള ചർച്ചയിൽ ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

ആസിയാൻ ഉച്ചകോടിക്കിടെ സിംഗപ്പൂരിൽ യു എസ് വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം

നരേന്ദ്രമോദി പറഞ്ഞു പ്രതിരോധ വ്യവസായത്തിനും വലിയ സാധ്യതകളുണ്ട് നയതന്ത്ര തലത്തിലും സാമ്പത്തിക രംഗത്തും ഇന്ത്യാ വലിയ പുരോഗതി കൈവരിച്ചുവെന്ന് യു

പ്രതിരോധ വാണിജ്യത്തിനു പുറമെ ആഗോള ഭീകരതയെ ചെറുക്കാനുള്ള മാർഗ്ഗങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു ഭീകരതയ്ക്ക് പൊതു സ്വഭാവമാണുള്ളത് മുംബൈ ആക്രമണത്തിലും പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭീകരാക്രമണത്തിലും പങ്കെടുത്തവർ ഇന്ത്യയ്ക്കും യു എസ്സിനും മാത്രമല്ല ലോക സമൂഹത്തിനു തന്നെ ആശങ്ക ഉളവാക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു മേഖലാ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ തികച്ചും ക്രിയാത്മകമായ സമീപനമാണ് പുലർത്തുന്നതെന്ന് മൈക്ക് പെൻസ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയും യു

അമേരിക്കയിൽ നിന്ന് കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറാണ്

ചീഫ് ജസ്റ്റിസ് രജ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

നടപടി ക്രമങ്ങൾ തെറ്റിച്ചാണ് ഇടപാട് നടത്തുന്നതെന്നും ഇതു സംബന്ധിച്ച് പ്രഥമവിവര റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു

മിസോറാമിൽ പ്രചാര്യണ്ട് ഊർജ്ജിതമായി

സദാനന്ദ കേന്ദ്ര ഇന്ന് ന്യൂഡൽഹിയിൽ നിലവിലുള്ള വകുപ്പുകൾക്ക് പുറമെ ഗൌഡ വകുപ്പിന്റെ കൂടി ചുമതലയേറ്റു

ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർലമെന്ററി കാര്യ മന്ത്രിസഭാ സമിതിയാണ് തീരുമാനമെടുത്തത്

ജിതേന്ദ്ര സിംഗ് വിലയിരുത്തി

വൈസ് ചാൻസിലർ പ്രൊഫ

ജഗദേശ് കുമാറും വിവിധ വിഭാഗം ഉദ്യോഗസ്ഥരും മറ്റ് മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു

അതിവേഗ വാർത്താവിനിമയ സൌകര്യമാണ് ഇതോടെ രാജ്യത്തിന് ലഭ്യമാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് നീലേശ്വരം

എൽ

അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോഗിച്ച് പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഉപഗ്രഹം പ്രയോജനകരമാകും

അടുത്ത വർഷം ആദ്യം പദ്ധതിയിട്ടിട്ടുള്ള ചന്ദ്രയാൻ രണ്ട് ദൌതൃത്തിന് ഇന്നത്തെ വിജയം ഏറെ ഗുണകരവും പ്രോത്സാഹനജനകവുമാണ്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് ഉപയോഗിച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചത് ഇരട്ട നേട്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വിദൂര വാർത്താവിനിമയത്തിന് ഉപഗ്രഹം പ്രയോജനകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യമൊട്ടാകെ ശിശുദിനമായും ആഘോഷിക്കുകയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജവഹർലാൽ നെഹ്റുവിന് ആദരാജ്ഞലി അർപ്പിച്ചു സ്വാതന്ത്ര്യ സമരത്തിലും പ്രധാനമന്ത്രിയെന്ന നിലയിലും നെഹ്റു ചെയ്ത സേവനങ്ങൾ ശ്രീ

പണ്ഡിറ്റ് നെഹ്റുവിന്റെ സമാധി സ്ഥലമായ ശാന്തിവനത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻസിംഗ് യു

എ അധ്യക്ഷ സോണിയ ഗാന്ധി എന്നിവർ ആദരാജ്ഞലി അർപിചു ശിശുദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുമായി രാപ്രഷ്ടപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിഭവനിൽ ആശയവിനിമയം നടത്തി

കേന്ദ്ര സാസ്കാരിക മന്ത്രി മഹേഷ്ശർമ്മ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഗ്രാമീണ സംരംഭങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ആശയം അഫ്ഗാനിസ്ഥാനാണ് ഈ വർഷത്തെ പങ്കാളിത്ത രാഷ്ട്രം നേപ്പാൾ പ്രത്യേക ശ്രദ്ധാകേന്ദ്ര രാജ്യമാണ് വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രസംസ്ഥാനങ്ങളുടെയും പവലിയനുകൾ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്

ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ പുനപ്പരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഗവണ്മെന്റ് സർവ്വകക്ഷിയോഗം വിളിച്ചത്

ഇന്ത്യൻ മഹാസമുദ്ര രാജ്യങ്ങളുടെ സംയുക്ത നാവികസേന എന്ന നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ച നടത്തുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബ പറഞ്ഞു

സ്വർണ്ണത്തിനായി എം

മേരികോം നാളെ മത്സരത്തിനിറങ്ങും

പത്തംഗ ഇന്ത്യക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്